എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ കലാശിച്ചു വാർത്തകൾ വിശദമായി നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വപ്നം കണ്ട ശക്തവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു

രാജ്യത്തിന്റെ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും അനുയോജ്യമായ മറുപടി നൽകുന്നുണ്ട്

അയൽരാജ്യങ്ങൾക്ക് സൌജന്യമായി കോവിഡ് വാക്സിൻ നൽകാൻ സാധിച്ചു സ്വയം പര്യാപ്തതയിലൂടെ രാജ്യം കൊവിഡ് മഹാമാരിയെ ചെറുത്തു തോൽപ്പിച്ചതിന്റെ മികച്ച ഉദാഹരണമാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ദ്ദേ കൊവിഡ് മഹാമാരിയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യം നൽകിയ പിന്തുണയ്ക്ക് ലോകാരോഗ്യ സംഘടന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയ്ക്ക് നന്ദി അറിയിച്ചു വൈജ്ഞാനിക പങ്കുവെയ്ക്കൽ ഉൾപ്പെടെ ഒരുമിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ വൈറസ് വ്യാപനം നിയന്ത്രിക്കാനും ജീവൻ രക്ഷിക്കാനും സാധിക്കൂവെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസസ് ട്വിറ്ററിൽ പറഞ്ഞു ബ്രസീൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ കൊവിഡ് വാക്സിൻ വിതരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യസംഘടനയുടെ പ്രതികരണം വാക്സിൻ ലഭ്യമാക്കിയതിന് ബ്രസീലിയൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയെ നന്ദി അറിയിച്ചു ആഗോള പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയെപ്പോലെ രാജ്യത്തെ പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആറ് മരണങ്ങൾ കൊവിഡ് വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഇന്നലെ വാക്സിനേഷൻ നടന്നത് രുര പ്രവാസികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏകജാലകസംവിധാനം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിദ്യാഭ്യാസ ടൂറിസ ആരോഗ്യ മേഖലകളിലെ വികസനത്തിലും കൂടുതൽ ശ്രദ്ധകേന്ദ്രീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള നിർമാണത്തിനായി പ്രവാസി മലയാളികളുമായി തിരുവനന്തപുരത്ത് ആശയവിനിമയം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി

നാടും പ്രവാസികളും തമ്മിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതരസംസ്ഥാനങ്ങളിൽനിന്നും മറ്റു രാജ്യങ്ങളിൽനിന്നും സംസ്ഥാനത്തെ ഉന്നതവിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർഥികളെ ആകർഷിക്കാൻ കലാലയങ്ങളിലും സർവകലാശാലകളിലും വൻതോതിൽ അടിസ്ഥാന സൌകര്യമൊരുക്കുമെന്നും പിണറായി വിജയൻ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുഭ റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും സായുധ സേന പോലീസ് പാരാമിലിറ്ററി എൻ

സി പരേഡുകളും ചടങ്ങിൽ നടക്കും ജില്ലാതല പരിപാടികളിൽ മന്ത്രിമാർ പതാക ഉയർത്തും

സബ് ജില്ലാ തലത്തിൽ സബ് ജില്ലാ മജിസ്ട്രേറ്റുമാരും ബ്ലോക്ക് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമാണ് പതാക ഉയർത്തുക

തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷൻമാരാണ് പതാക ഉയർത്തുക

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം ചടങ്ങുകൾ

രുര നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ അന്തിമ ആക്ഷൻ പ്പാൻ അടുത്തയാഴ്ച സമർപ്പിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം വിലയിരുത്തി ഇത്തവണ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർധിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം കണക്കിലെടുത്താവും പോലീസിന്റെ അന്തിമ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക പോലീസിന്റെയും കേന്ദ്ര സേനകളുടെയും വിന്യാസം ക്രമസമാധാന പാലനം കള്ളവോട്ടു തടയൽ പ്രശ്നബാധിത പ്രദേശങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്

ഇന്ന് വൈകീട്ട് അഞ്ചിന് ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ്

സി ഒഡീഷ എഫ്

രുര നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് യുവജനങ്ങളുടെ അഭിപ്രായം ആരായാനും വിദ്യാർഥികളുമായി സംവദിക്കാനും അവസരം നൽകുന്ന നവകേരളം യുവ കേരളം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം ഒന്നിന് നിർവഹിക്കും

രും നഗര വികസനവുമായി ബന്ധപ്പെട്ട് ജഗദാംബികപാലിന്റെ നേതൃത്വത്തിൽ പാർലമെന്ററി സമിതി കൊച്ചി സന്ദർശിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പും വിനിയോഗവും സംബന്ധിച്ച യോഗത്തിനു ശേഷമാണ് സമിതി സന്ദർശനം നടത്തിയത് രുഭ വയനാട് മേപ്പാടിയിൽ വിനോദ സഞ്ചാരത്തിനെത്തിയ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു

രുര പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ഐശ്വര്യ കേരളയാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കണ്ണൂർ ജില്ലയിലെ യു

ഉച്ച തിരിഞ്ഞ് മൂന്നിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിലാണ് യോഗം രുര കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് വനിതാ ജനപ്രതിനിധികളുടെ സംഗമം കണ്ണൂരിൽ നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടരി കെ

എ മജീദ് ഉദ്ഘാടനം ചെയ്തു രും ജില്ലാതല പരാതി പരിഹാര അദാലത്ത് സാന്ത്വന സ്പർശം കോഴിക്കോട് കൊല്ലം ജില്ലകളിൽ അടുത്ത മാസം ഒന്ന് രണ്ട് നാല് തീയതികളിൽ നടക്കും

അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം രുര ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് വർദ്ധിച്ചു വരുന്ന കോവിഡ് വ്യാപന സാഹചര്യം ജനപ്രതിനിധികളുടെ യോഗം വിലയിരുത്തി വരും ദിവസങ്ങളിൽ ജനകീയ ബോധവത്കരണം ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു

ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നൂതന സംരംഭമായ ഇ എപിക് പ്രകാശനവും ചടങ്ങിൽ നടക്കും രും സംസ്ഥാന വനിതാ കമ്മീഷന്റെ എറണാകുളം ജില്ല മെഗാ അദാലത്ത് നാളെ കാക്കനാട് നടക്കും രുര ഇന്ന് ദേശീയ ബാലികാ ദിനം പെൺകുട്ടികൾക്ക് തുല്യ അവസരം ഉറപ്പാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ലിംഗാനുപാതം തുടങ്ങിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് ബേഠി ബഛാഓ ബേഠി പഠാഓ ഉൾപ്പെടെ പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്ക്കരിച്ചത്

രംഭ ഊർജമേഖലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സംയുക്ത സ്റ്റിയറിംഗ് കമ്മറ്റി യോഗത്തിൽ ധാരണയായി